ബിംസ്റ്റെക് ഉച്ചകോടിക്ക് സമാപനം ബംഗാൾ മേഖലയുടെ വികസനത്തിൽ പുതിയ നാഴികക്കല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ജമ്മുകാശ്മീരിൽ ഭീകരരുടെ പിടിയിലായ ര ുപേരെ വിട്ടയച്ചു

ബന്ദികളായ ഒൻപത്പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നു

വനിതകളുടെ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ജപ്പാനെ നേരിടുന്നു

ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഏഴ് രാഷ്ട്രങ്ങളിലെ തലവൻമാർ പങ്കെടുത്ത ഉച്ചകോടിയിൽ പരസ്പരമുള്ള സാമ്പത്തിക സാങ്കേതിക സഹകരണത്തിനാണ് ഊന്നൽ നൽകിയത്

ബംഗാൾ മേഖ്ലിയുടെ വികസനത്തിന് പുതിയ നാഴികക്കല്ലാണ് പിന്നിട്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു

നേപ്പാൾ പ്രധാനമന്ത്രിയും ബിംസ്റ്റെക്കിന്റെ അധ്യക്ഷനുമായ കെ

അംഗരാജ്യങ്ങളെ തമ്മിൽ ബന്ധിഖപ്പിച്ചു കൊ ുള്ള ഇന്റർനെറ്റ് കണക്റ്റിവിറ്റിയും സാമ്പത്തിക സഹകരണവുമാണ് കരാറിലെ പ്രധാന വിഷയം

തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കാനും ഉച്ചകോടിയിൽ തീരുമാനമായി ഭീകര സംഘടനകൾക്ക് എത്തുന്ന സാമ്പത്തിക സഹായം തടയാനും നടപടികൾ ഉ ാകും

കാഠ്മണ്ഡുവിൽ ര ു ദിവസമായി നടന്നു വരുന്ന ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മ്യാൻമർ പ്രസിഡന്റുറമായും തായ്ലാന്റ് നേപ്പാൾ പ്രധാനമന്ത്രിമാരുമായും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി ബിംസ്റ്റെകിന് വ്യക്തമായ കാഴ്ചപ്പാടോടെയുള്ള ശക്തമായ അടിത്തറ സൃഷ്ടിക്കാൻ ഈ ഉച്ചകോടിയിലൂടെ സാധിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ അറിയിച്ചു ന്യൂസ്ഡെസ്ക് ആകാശവാണി

ശർമ്മ ഒലിയും ചേർന്ന് നിർവ്വഹിച്ചു ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സഹകരണത്തിന്റെ പ്പിത്യീക്മാണ് ധർമ്മശാലയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എല്ലാവർക്കും വികസനം എന്നതാണ് തന്റെ ഗവൺമെന്റിന്റെ ലക്ഷ്യം ഇതിൽ അയൽരാജ്യമായ നേപ്പാളിന്റെ ്പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു കാഠ്മണ്ഡുവിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രിയുമായി ഉഭ്യകക്ഷി ചർച്ചകൾ നടത്തി

മൂന്നു വർഷത്തിനകം ഏറ്റെടുത്തു നടത്തേ സെൻസസിന്റെ വേളയിൽ ഓഫീസിന്റെ പ്രവർത്തനത്തിലും സാങ്കേതികതയിലും വരുത്തേ മെച്ചപ്പെടുത്തലും വിലയിരുത്തി

തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഹർജികളിൽ വാദം കേൾക്കുന്നത് മാറ്റിവെയ്ക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻ്റും ജമ്മുകാശ്മീർ ഗവൺമെൻ്റും സുപ്രീംകോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു

മുതിർന്ന കോൺഗ്രസ് നേതാവായ ചിദംബരത്തെ നാലാം തവണയാണ് ചോദൃം ചെയ്യുന്നത് എയർസെല്ലിലെ വിദേശ നിക്ഷേപത്തിനായി നിക്ഷേപ പ്രോത്സാഹന ബോർഡ് ക്സിയറൻസിന് ഉള്ള അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടതാണ് എയർസെൽ മാക്സിസ് കേസ്

എന്നാൽ ജർമ്മുകാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത ബന്ധുക്ക്ളായ ഒൻപത് പേർ ഇപ്പോഴും ഭീകരരുടെ പിടിയിലാണ് ന്റേരത്തെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ നേതാവ് റിയാസ് നായ്ക്കൂർന്റെ ്പിതാവിനെ ചോദ്യം ചെയ്ത ശേഷം പോലീസ് വിട്ടിയച്ചിരുന്നു എന്നാൽ തട്ടിക്കൊ പോകലിന്റെ ഉത്തരവാദ്ദിത്ത്ർ ഇതുവരെ ഒരു ഭീകര സംഘടനയും ഏറ്റെടുത്തിട്ടില്ല

ഇതിനായി പ്രവാസി മലയാളികൾ ഏറെയുളള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ധനസമാഹരണം നടത്തും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് പ്രവാസികളിൽ നിന്ന് ധനസമാഹരണം നടത്താനാണ് തീരുമാനം ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ നിന്നും ധനശേഖരണം നടത്തും

സോണൽ എന്റമോളജിക്കൽ ടീം ജില്ലാ മെഡിക്കൽ സംഘവുമായി ചേർന്നാണ് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തൃശ്ശൂർ കോർപ്പറേഷനിൽ പരിശോധന നടത്തിയ ആരോഗ്യ ഉദ്യോഗസ്ഥർ കി്ണറുകളിലെ വെള്ളം പരിശോധിച്ച് ക്ലോറിനേഷൻ അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി ഡെങ്കിപ്പനി എലിപ്പനി തുടങ്ങിയ സാംക്രമിക രോഗങ്ങൾ തടയുന്നതിനുള്ള പ്രവർത്തനങ്ങളും സംഘം നടത്തുന്നു ് ജലം ക്രമാതീതമായി ഉയർന്ന പ്രദേശങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ശുചിത്വം പാലിക്കണമെന്നും കേന്ദ്രസംഘം അറിയിച്ചു

ശബ്ദരിമലയിൽ പ്രളയം വലിയ നാശനഷ്ടമാണു ാക്കിയത്

പുനർനിർമാണം വേഗ്രത്തിലാക്കാൻ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല സമിതിയെ നിയോഗിച്ചു പുനർനിർമാണത്തിന്റെ ചുമതല ടാറ്റാ പ്രോജക്ട് ലിമിറ്റഡിന് നൽകും

നദി കടന്നു പോകുന്ന വഴിയിലുള്ള പല ജില്ലാ ഭരണകൂടങ്ങളും നിതാന്ത ജാഗ്രതയിലാണ് ധെമാജി ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടു ് എന്നാൽ ഭയപ്പെടേ സാഹചര്യമില്ലെന്നും പ്രശ്നമു ഔയാൽ നേരിടാൻ വേ എല്ലാ നടപടികളും കൈക്കൊ ിട്ടു െ ന്നും ഭരണകൂടം വ്യക്തമാക്കി

പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ വരവോടെ ഓൺ ലൈനായോ മൊബൈൽ ആപ്പുവഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ്ഓഫീസ് സന്ദർശിച്ചോ ഉപഭോക്താക്കൾക്ക് ഏത് ബാങ്ക് അ ക്കൌ ിലേക്കും പണം കൈമാറുന്നതടക്കമുള്ള ഡിജിറ്റൽസേവന ങ്ങൾ പ്രയോജനപ്പെടുത്താം വൈദ്യുതി ബിൽ ഡി ടി

വനിതാ വിഭാഗം ഹോക്കി ഫൈനലിൽ ഇന്തൃ ജപ്പാൻ മത്സരം പുരോഗമിയ്ക്കുകയാണ്